ഒരുകോടിരൂപ വരെയുള്ള പുതിയ വായ്പകൾക്ക് രണ്ടു ശതമാനം പലിശ ഇളവു നല്കുക്ടുമന്ന് ശ്രീ നരേന്ദ്രമോദി

സമുദ്രാതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാൻ നാവികസേന നിതാന്ത ജാഗ്രത പൂലർത്തണമെന്ന് പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ

യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലക്കലിലെ സംഘർഷങ്ങളൂടെ ദൃശൃങ്ങൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം

ന്യൂഡൽഹി വിജ്ഞാൻഭവനിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള കർമ്മ പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകിട ഇടത്തരം വൃവസായങ്ങളുടെ കയറ്റുമതിക്കുള്ള പലിശ നിരക്കിനുള്ള കുറവ് മൂന്ന് മുതൽ അഞ്ചു ശതമാനം വരെയായിരിക്കുമെന്നും ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

എന്നാൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പുറത്തു വിട്ടിട്ടില്ല

ഛത്തീസ്ഗഡിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നാളെയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം അഞ്ചു വരെയുമാണ്

ന്യൂഡൽഹിയിൽ ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രതെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോഗത്തിന് ശേഷം കമ്മിറ്റി സെക്രട്ടറി ജെ

നദ്ദയാണ് ലിസ്റ്റ് പുറത്തിറക്കിയത്

മുൻ എം

എയും മുതിർന്ന പാർട്ടി നേതാവുമായ ബദ്ദാം ബാൽ റെഡ്ഡി മുൻ എം

ലക്ഷ്മി നാരായണ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട്

പ്രേംചന്ദ് ഗുഡ്സു ബി ജെ

ജെ

നേതാക്കളുടെയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരായ തവർചന്ദ് ചാന്ദ് ഗഹ്ലോട്ട് നരേന്ദ്രസിംഗ് തോമർ എന്നിവരുടെയും സാന്നിധൃത്തിൽ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വച്ചായിരുന്നു പ്രഖ്യാപനം

ചിദംബരത്തിന്റെ കുടുംബാംഗിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ആദായനികുതി വകുപ്പിട്ടന്റെ ്ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി കള്ളപ്പണക്കേസിൽ ശ്രീ ചിദംബരത്തിന്റെ ഭാരൃ മകൻ മരുമകൾ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് ബാങ്ക് അക്കൌണ്ടുകൾ സംബന്ധിച്ചും വിദേശ നിക്ഷേപം സംബന്ധിച്ചും വിശദാംശങ്ങൾ കൈമാറാത്തതിനെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് ഇവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരോപിച്ചത് ഇവർക്കെതിരെ നിലവിൽ കേസുകളൊന്നും ഇല്ലെന്ന് രണ്ടംഗ ഡിവിഷൻ ബഞ്ച് വിലയിരുത്തി

പി അനുരാധ് താക്കൂറിനും ഹിമാചൽപ്രദേശ് മുൻമുഖ്യമന്ത്രി പ്രേംകുമാർ ധുമാലിനുമെതിരെ ചുമത്തിയ പ്രഥമ വിവിര റിപ്പോർട്ട് സുപ്രീംകോടതി റദ്ദാക്കി

വിരഭദ്രസിംഗ് ഗവണ്മെന്റിന്റെ കാലത്ത് തങ്ങൾക്കെതിരെ തയ്യാറാക്കിയ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഇത് അനുവദിച്ചിരുന്നില്ല

ജലഗതാഗതം റോഡ് ഗതാഗത്തേക്കാൾ താരതമ്യേന ചെലവ് കുറഞ്ഞതാണെന്ന് മന്ത്രി പറഞ്ഞു

നാവിക കമാന്റർമാരുടെ ദൈവാർഷിക സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ നാവികസേന രാജ്യത്തിന്റെ സ്വാഭിമാനം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തെ അവർ ശ്നാഘിച്ചു

അപ്പിൽ സമർപ്പിച്ചത് വൈകിയതിലുള്ളൂ ക്കാരണം തൃപ്തികരമല്ലെന്ന് ചീഫ്ജസ്റ്റിസ് രജ്ജൻ ക്റൊഗോയി അദ്ധ്യക്ഷനായ ബഞ്ച് വിലയിരുത്തി എന്നാൽ ഫഹൈക്കോടതി വിധിക്കെതിരെ ഒരു അഭിഭാഷകൻ കോടതിയുടെ പരിഗണനയിലാണെന്നും സിബിഐക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഹർജിപരിഗണനാ വേളയിൽ വാദ മുഖങ്ങൾ സമർപ്പിക്കാവുന്നതാണെന്നും ഡിവിഷൻ ബഞ്ച് വ്യക്തമാക്കി

ഉത്തർപ്രദേശ് ബീഹാർ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് അടൽ പെൻഷൻ യോജനയിൽ മുന്നിൽ നിൽക്കുന്നത്

ഋഷികേശിലെ എയിംസിന്റെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ടുമെന്റും ഉത്തരാഖണ്ഡ് ഗവണ്മെന്റും ഹരിദ്വാറിലെ പതഞ്ജലി സർവ്വകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രഥമ ജ്ഞാൻകുംഭും രാഷ്ട്രപതി ഉദ്ഘാട്ടൻ ് ചെയ്യും

എന്നാൽ ശബരിമല മാസ്റ്റർപ്താൻ പ്രകാരം നിയമവിധേയമായ കെട്ടിടങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഗവൺമെന്റിന് കോടതി അനുമതി നൽകി സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഇന്നലെ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ വാദം കേൾക്കവെയാണ് കോടതി നിർദ്ദേശം

സംഘർഷവുമായി ബന്ധപ്പെട്ട് പൊലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടത് തിങ്കളാഴ്ച ഹാജരാക്കാനാണ് നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും ഹാജരാക്കുമെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു മണ്ഡല മകരിവളക്കിന്റെ ഭാഗമായി ശബരിമലനട വീണ്ടും തുറക്കാനിരിക്കെ സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും ഗവൺമെന്റ് കോടത്തിയിൽ ആവശ്യപ്പെട്ടു

അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത അഞ്ച് പേർ ഇത്തവണ കേരള ടീമിലുണ്ട്

ഗോകുൽ സി മുഹമ്മദ് ഫായിസ് അപർണ റോയ് സാന്ദ്ര ബാബു അബിന മേരി മാനുവൽ എന്നിവരാണ് അവർ

അഞ്ചു മുതൽ ഏഴ് കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഐഇഡി നിർവ്വീര്യമാക്കിയതോടെ വൻദുരന്തം ഒഴിവാക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു